ഘട്ടങ്ങൾക്കുകൂടി കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി

ഇന്ത്യൻസ് പോരാട്ടം

സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഭാരത് ബയോടെക് ഡോ റെഡ്സീസ് ലാബ്സ് സൈഡസ് കൃാഡില തുടങ്ങി വിവിധ വാക്സിൻ നിർമാണ കമ്പനി മേധാവികൾ യോഗത്തിൽ ർ പങ്കെടുക്കുന്നുണ്ട് രാജ്യത്ത് കോവിഡ് വാക്സിൻ ലഭ്യത്ത് ഇറിപ്പുവരുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ യോഗത്തിൽ നടക്കും ക്കോവ്പിസ് വ്യാപനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഡോക്ടർമാരുമായുർ ഫാർമ കമ്പനി മേധാവികളുമായും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പ്ലർച്ച് നടത്തിയിരുന്നു

എറണാകുളം കോഴിക്കോട് മലപ്പുറം തൃശൂർ ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്

കോവിഡ് വ്യാപനം തടയുന്നതിനായി സംസ്ഥാനത്ത് രാത്രികാല കർഫ്യൂ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെട്ടുത്തിയിട്ടുണ്ട്

ടെസ്റ്റ് പൊസിറ്റിവിറ്റി ഉയർന്ന് നിൽക്കുന്ന തദ്ദേശസ്വയംഭരണസ്ഥാപനങ്ങളിൽ താമസിക്കുന്ന എല്ലാവരേയും കൊവിഡ് പരിശോധനക്ട്ടുക്ക് വിധേയരാക്കാനും ചീഫ്സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്ന്തതലസമിതി യോഗത്തിൽ തീരുമാനമായി

രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി

കോവിഡ് സാഹചര്യങ്ങൾ വിലയിരുത്താൻ സൈനിക തലവൻമാരുമായും പ്രതിരോധ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും ഇന്ന് നടത്തിയ ചർച്ചയിലാണ് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചത് വർദ്ധിച്ചു വരുന്ന കൊറോണ വ്യാപനം തടയാൻ സൈന്യത്തിന്റെ സേവനം പൂർണ്ണമായി വിനിയോഗിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത് മൂന്ന് സേനാ മേധാവികൾ പ്രതിരോധ സെക്രട്ടറി ഡി

ഡി ഒ ചെയർമാൻ സായുധ സേനാ മെഡിക്കൽ സർവീസ് മേധാവി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു

സംസ്ഥാനങ്ങൾക്ക് വേണ്ട സഹായം മുഖ്യമന്ത്രിമാരുമായി ബന്ധപ്പെട്ട് ലഭ്യമാക്കാൻ സായുധ സേനയുടെ പ്രാദേശിക ക്മാന്റർമാർക്ക് നിർദ്ദേശം നൽകാനും തീരുമാനമായി

ജി സി നെറ്റ് പരീക്ഷകൾ മാറ്റിവച്ചതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു

രാമനവമി ആഘോഷങ്ങളിൽ ആൾക്കൂട്ടം ഒഴിവാക്കണമെന്നും മഹാരാഷ്ട്ര സർക്കാർ നിർദ്ദേശം നൽകി

ലോക്ക് ഡൌൺ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അടുത്ത ഒരിഴ്ച് കാലം ആരോഗ്യ സുരക്ഷാ വാരമായി ആചരിക്കണമെണ്ണൂർ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ആവശ്യപ്പെട്ടു

മുതിർന്ന കോൺഗ്രസ് നേതാവും വയനാട് എം പിയുമായ രാഹുൽ ഗാന്ധിക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്

ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും ലഭ്യമായ ബെഡുകളുടെ വിവരങ്ങൾ ഡൽഹി കൊറോണ ആപ്പിലൂടെ അറിയാനാകുമെന്നും അദ്ദേഹം അറിയിച്ചു

ഓക്സിജൻ എക്സ്പ്രസ് എന്ന പേരിൽ തുടങ്ങുന്ന ട്രെയിൻ സർവീസിലൂടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഓക്സിജൻ സിലിണ്ടറുകൾ ഉൾപ്പെടെയുള്ള അവശൃസാധനങ്ങൾ എത്തിക്കും കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്തും അവശ്യ വസ്തുക്കളുമായി റെയിൽവേ സർവീസ് നടത്തിയിരുന്നു

രാജ്യത്തെ ഓക്സിജൻ വിതരണം സുഗമമാക്കാൻ നടപടി സ്വീകരിച്ച് വരുന്നതായി വാണിജൃ സെക്രട്ടറി അനൂപ് വാധാൻ അറിയിച്ചു

ജെ പി ദേശീയ അധ്യക്ഷൻ ജെ

വലിയ റാലികളും റോഡ് ഷോയും ഒഴിവാക്കുമെന്ന് തൃണമൂൽ നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി അറിയിച്ചു

കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്ന പശ്ചിമബംഗാളിൽ ഇനി രണ്ട് ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ കൂടിയാണ് ബാക്കിയുള്ളത്

ആർ പുരം മുതൽ വിമാനത്താവളം വഴി ഹെബ്ബാൾ ജംഗ്ഷൻ വരെയുമാണ് മെട്ട്രോ ദീർഘിപ്പിക്കുക

അതേ സമയം രാജ്യത്ത് ട്രെയിൻ ടിക്കറ്റുകൾ കിട്ടുന്നില്ലെന്ന വാർത്തകൾ ശ്രീ

ട്രെയിനുകൾ പൂർണമായും പ്രവർത്തന സജ്ജമാണെന്നും ടിക്കറ്റുകൾ എല്ലാവർക്കും ലഭിക്കുന്നുണ്ടെന്നും മന്തി പറഞ്ഞു കുടിയേറ്റ തൊഴിലാളികൾക്ക് ട്രെയിൻ ടിക്കറ്റ് ലഭിക്കാത്ത അവസ്ഥ ഇല്ലെന്നും ഇവർക്ക് വേണ്ടി പ്രത്യേക ട്രെയിനുകൾ ഓടുന്നതായും അദ്ദേഹം പറഞ്ഞു ബാംഗ്ലൂർ മെട്രോ പദ്ധതിക്ക് പുറമേ താച്ചർ ഫെർട്ടിലെസേഴ്സ് ലിമിറ്റഡിൽ ഉത്പാദിപ്പിക്കുന്ന യൂറിയക്ക് സബ്സിഡി ഏർപ്പെടുത്താനുള്ള പ്രത്യേക നയത്തിനും മന്ത്രിസഭാ യോഗം അനുമതി നൽകി യൂറിയ ഇറക്കുമതി കുറയ്ക്കാൻ തീരുമാനം സഹായിക്കുമെന്ന് ശ്രീ പിയൂഷ് ഗോയൽ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ആകാശവാണി

ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം

പ്രവാചകനായ മുഹമ്മദ് നബിയെ അപമാനിക്കൂന്ന തരത്തിലുള്ള കാർട്ടൂണുകൾക്കെതിരെ പാകിസ്ഥാനിൽ നടക്കുന്ന ഫ്രഞ്ച് വിരുദ്ധ പ്രതിഷേധങ്ങൾ അക്രമത്തിലേക്ക് വഴി മാറിയ സാഹചരൃത്തിലാണ് ഈ നീക്കം